രാജ്യം ആരുഭരിക്കുമെന്നറിയാൻ ഇനി രണ്ടു ദിവസം മാത്രം

ദേശീയ ്യൂത്ത് ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ത്തിന് ഇന്ന് ഇരട്ട ഫൈനൽ ൾ ൽ ൾ രാജ്യം ആരു ഭരിക്കുമെന്നറിയാൻ ഇനി രണ്ട് ദിവസം മാത്രം

ഓരോ മണ്ഡ ലത്തിലേയും വോട്ടിങ്ങ് യന്ത്രങ്ങളിൽ രേഖപ്പെടുത്തിയ വോട്ടു കൾക്കൊപ്പം അഞ്ച് പോളിങ്ങ് ബൂത്തുകളിലെ വിവി പാറ്റ് സ്ലിപ്പൂ കളും എണ്ണിയായിരിക്കും ഫലപ്രഖ്യാപനം സമഗ്രവും കൃത്യവുമായ തെരഞ്ഞെടുപ്പ് ഫലം ജനങ്ങളിൽ എത്തിക്കാൻ ആകാശവാണി വാർത്താ വിഭാഗം വ്വിപുലമായ സജ്ജീ കരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തൽസമയ ലീഡ് നിലകളും പ്രവ ണതകളും ഫലവും വിശകലനങ്ങളും ദേശീയ പ്രാദേശിക നിലയ ങ്ങൾ പ്രക്ഷേപണം ചെയ്യും

തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ പുതിയ ഗവൺമെന്റ് രൂപീ കരണവുമായി ബ്ന്ധപ്പെട്ട് ഡൽഹിയിൽ പാർട്ടികളുടേയും മുന്നണി കളുടേയും ചർച്ചകളും കൂടിയാലോചനകളും പുരോഗമിക്കുകയാ ണ് എൻഡിഎ സഖ്യത്തിലെ നേതാക്കൾക്ക് ഇന്ന് ബിജെപി അധ്യ ക്ഷൻ അമിത് ഷാ ഇന്ന് വിരുന്ന് സൽക്കാരം നടത്തും പൊതു തെര ഞ്ഞെടുപ്പിന്റെ വിശകലനവും ഗവൺമെന്റ് രൂപീകരണവും ഉൾപ്പെടെ വിഷയങ്ങൾ നേതാക്കൾ അനൌപചാരികമായി ചർച്ച ചെയ്യും പ്രധാ നമന്ത്രി നരേന്ദ്രമോദിയും വിരുന്നിൽ പങ്കെടുത്തേക്കും ബീഹാർ മുഖ്യമന്ത്രി നിധീഷ് കുമാർ ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ ലോക്ജനശക്തി നേതാവ് രാംവിലാസ് പസ്വാൻ തുടങ്ങിയവരും വിരു ന്നിൽ പങ്കെടുക്കും ഇതിന് മുമ്പ് മുതിർന്ന ബിജെപി നേതാക്കളുടെ യോഗവും പാർട്ടി ആസ്ഥാനത്ത് ചേരും പ്രതിപക്ഷ പാർട്ടികളും ഗവൺമെന്റ് രൂപീകരണത്തിന് തന്ത്രങ്ങൾ ആവിഷ്ക്കരിച്ച് വരികയാണ്

ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി എസ്പി ബിഎസ്ബി സിപിഐ എൻസിപി തുടങ്ങിയ കക്ഷി കളുമായി ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നട ത്തിയിരുന്നു പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായി നായിഡു ഇന്നും കൂടിക്കാഴ്ച്ച നടത്തിയേക്കും എക്സിറ്റ്പോൾ ഫല പ്രവചനങ്ങളുടേയും കേട്ടുകേൾവികളു ടേയും അടിസ്ഥാനത്തിൽ തളരാൻ പാടില്ലെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി പാർട്ടി അണികളോട് ആവശ്യപ്പെട്ടു പ്രവർത്തകരെ നിരാശരാക്കാനും തളർത്താനും ലക്ഷ്യമിട്ടാണ് ഇത്തരം പ്രചാരണങ്ങളെന്ന് അവർ ന്യൂഡൽഹിയിൽ പറഞ്ഞു എല്ലാ മണ്ഡലങ്ങളിലും വോട്ടിങ്ങ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്ര ങ്ങൾക്ക് സംരക്ഷണം നൽകാനും ജാഗ്രത പുലർത്താനും അവർ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു വോട്ടിങ്ങ് യന്ത്രങ്ങളുടെ വിശ്വാസൃത കാത്തു സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷി നേതാക്കൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും

തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേരും കമ്മീഷൻ അംഗം അസോക് ലവാസയുമായി അഭിപ്രായ ഭിന്നത നിനിൽക്കുന്ന സാഹചര്യത്തിലാണ് യോഗം നരേന്ദ്രമോദിക്കും അമിത് ഷായ്ക്കും ക്ലീൻ ചിറ്റ് നൽകിയ കമ്മീഷന്റെ തീരുമാനത്തിൽ തന്റെ വിയോജനക്കുറിപ്പ് അംഗീകരിക്കണമെന്ന് ലവാസ പരസ്യമായി നിലപാടെടുത്തിരുന്നു കമ്മീഷന്റെ പ്രവർത്തനങ്ങളോട് സഹകരി ക്കണമെന്ന് ആവശ്യപ്പെട്ട് ലവാസക്ക് കത്ത് നൽകിയിട്ടുമുണ്ട് ഇലക്ട്രോണിക് വോട്ടിങ്ങ് യന്ത്രത്തിലെ വോട്ടും വിവി പാറ്റ് സ്ലിപു കളും തമ്മിൽ പൊരുത്തക്കേട് ഉണ്ടാകുന്ന മണ്ഡലങ്ങളിൽ മുഴുവൻ വിപി പാറ്റും എണ്ണമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ന്യൂഡൽഹിയിൽ ആവശ്യപ്പെട്ടു

വടകരയിലെ കക്ഷി രഹിത സ്ഥാനാർത്ഥി സി

നസീറിനെ അക്രമിച്ചവർക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസും ബിജെ പിയും സിപിഐഎമ്മും ആവശ്യപ്പെട്ടു കോഴിക്കോട്ട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നസീറിനെ കക്ഷി നേതാ ക്കൾ സന്ദർശിച്ചു യുഡിഎഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ സിപിഐഎം സ്ഥാനാർത്ഥി പി ജയരാജൻ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി

കൃഷ്ണദാസ് എന്നിവർ ആശുപത്രിയിലെത്തിയിരുന്നു പ്രളയാനന്തര കേരളത്തിന്റെ നിർമ്മാണത്തിന് പ്രകൃതിക്കിണ ങ്ങുന്ന അടിസ്ഥാന സൌകര്യം വികസനം ലക്ഷ്യമിടുന്ന രൂപരേഖ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം പരിഗണിച്ചേക്കും

ഇതിന്റെ കരട് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു നിപ ബാധിതരെ പരിചരിക്കുന്നതിനിടെ രോഗബാധിതയായി മരിച്ച പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് ലിനിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒരു വർഷം

ഇന്നലെ മന്ത്രി ടി

രാമകൃഷ്ണൻ കോഴിക്കോട് ചെമ്പനോട യിലെ ലിനിയുടെ വീട്ടിലെത്തി കൂടുംബാംഗങ്ങളുമായി ഓർമ്മകൾ പങ്കുവെച്ചു

ശ്രീമതി ഉദ്ഘാ ടനം ചെയ്യും നടി പാർവ്വതി തിരുവോത്ത് മുഖ്യാതിഥിയായി പങ്കെ ടുക്കും ദേശീയ യൂത്ത് ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് ഇന്ന് ഇരട്ട ഫൈനൽ ഇന്നലെ കോയമ്പത്തൂരിൽ സെമിയിൽ

ഇന്നത്തെ ഹരിയാന കർണാടക മത്സര വിജയികളെ ആൺകുട്ടികളും രാജസ്ഥാൻ തമിഴ്നാട് മത്സരത്തിലെ വിജയികളെ പെൺകുട്ടികളും ഫൈനലിൽ നേരിടും നവകേരള സൃഷ്ടിക്ക് ഒരുമയോടെ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും ഗവൺമെന്റ് പുനരധിവാസ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടത്തി വരുന്നതായും മന്ത്രി എം

മണി പറ ഞ്ഞു പ്രളയാനന്തര പുനരധിവാസത്തിന്റെ ഭാഗമായി ഇരുമ്പുപാലത്ത് കെയർ ഹോം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മൂന്ന് വീടുക ളുടെ താക്കോലുകൾ കൈമാറുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് പ്രത്യേക വിജ്ഞാപനപ്രകാരം നിയമനം നൽകുന്ന ആദിവാസിവിഭാഗത്തിലെ പൊലീസുകാരുടെ പരിശീലനം പൂർത്തിയായി മലപ്പുറം ജില്ലയിൽ നിന്ന് എട്ടുപേർ ഇന്നലെ എം

പി യിൽ ചുമതലയേറ്റു മാവോവാദി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരുടെ പിന്തുണ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക നിയമനം നടത്തുന്നത്

ൃ എറണാകുളം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ സൌജന്യ സേവനം നൽകുന്ന ഡയാലിസിസ് സെന്റർ മന്ത്രി കടകം പള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

കേന്ദ്രത്തിന് പത്ത് പുതിയ യന്ത്രങ്ങൾ കൂടി ലഭിക്കും കൊച്ചി ജലമെട്രോയ്ക്കായി മൂന്ന് ബോട്ട് ടെർമിനലുകൾ നിർമ്മി ക്കുന്നതിന് കരാർ നൽകി

ഹൈക്കോടതി ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി വൈപ്പിൻ ബോൾഗാട്ടി ടെർമിനലുകൾക്ക് ടെൻഡർ നടപടികൾ അന്തിമഘട്ടത്തി ലാണെന്ന് കൊച്ചി മെട്രോ അറിയിച്ചു

പന്തളം കുരമ്പാലയിലെ ഹോളോ ബ്രിക്സ് നിർമ്മാണ സ്ഥാപനത്തിൽ നിന്നാണ് അസം സ്വദേ ശികളായ നാല് കുട്ടികളെ മോചിപ്പിച്ചത്

കല്ലട ട്രാവൽസിന്റെ ബസ്സിൽ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച സംഭവത്തിൽ മർദ്ദനമേറ്റവർ പ്രതികളെ തിരിച്ചറിഞ്ഞു എറണാകുളം സബ്ജയിലിലെ തിരിച്ചറിയൽ പരേഡിലാണ് കേസിൽ റിമാന്റിൽ കഴി യുന്ന പ്രതികളെയും ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയെയും തിരിച്ചറി ഞ്ഞത്

കേരളാ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച്ച ആലപ്പുഴയിൽ തുടങ്ങും മൂന്ന് ദിവസത്തെ സമ്മേളനം പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ്രഭാത് പട്നായിക് ഉദ്ഘാ ടനം ചെയ്യും ഇന്നത്തെ പാലക്കാട് ടൌൺ തിരുച്ചിറപ്പള്ളി പാസഞ്ചർ സർവീസ് ഈറോഡിൽ യാത്ര അവസാനിപ്പിക്കുമെന്ന് റെയിൽവെ അറിയിച്ചു ഈറോഡിനും തിരുച്ചിറപ്പള്ളിക്കുമിടയിൽ റെയിൽപാതയിലെ അറ്റ കുറ്റപ്പണികളെ തുടർന്നാണിത് കർണാടകയിലെ മടിക്കേരിയിൽ കാപ്പിത്തോട്ടത്തിലെ മര ക്കൊമ്പ് വെട്ടുന്നതിനിടെ ഷോക്കേറ്റ് മലയാളികളായ ഭർത്താവും ഭാര്യയും ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചു കാസർകോട് സ്വദേശി അനിൽ ഭാര്യ കവിത മടിക്കേരിയിലെ ദായന തമ്മയ്യ എന്നിവരാണ് മരിച്ചത്

കക്കാടംപൊയിൽ കരിമ്പ്കോളനിക്ക് സമീപം ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു അരീ ക്കോട് വെറ്റിലപ്പാറ സ്വദേശി രാജേഷിനെയാണ് തിരുവമ്പാടി പൊലീസ് പിടികൂടിയത്

മറ്റൊരു ബൈക്ക് ഓടിച്ചിരുന്ന ജീവൻ ബാബു എന്നയാളെ ഗുരുതരമായ പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു

സ്കൂൾ കൂട്ടികളുടെ യാത്രാസംവിധാനം കുറ്റമറ്റതാക്കുന്നതിന് കോട്ടയം ജില്ലാ പൊലീസ് ആവിഷ്കരിച്ച റെയിൻബോ പദ്ധതിക്ക് തുടക്കമായി സ്കൂൾ ബസുകൾ ഉൾപ്പടെ വാഹനങ്ങളുടെ ക്ഷമത പരിശോധിക്കുന്നതിനും ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നു

അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തകഴിയിലാണ് പൈപ്പ് പൊട്ടിയത്